നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിവരാറുള്ള തുഞ്ചൻ വിദ്യാരംഭ കലോത്സവവും ഇക്കുറി ഉണ്ടാവില്ല ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്ന കൂട്ടികൾക്ക് എം

വാസുദേവൻനായരുടെ അനുഗ്രഹ ഭാഷണം ഓൺലൈൻ മുഖേന നൽകും